ത നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ കോവിഡ് പരിശോധനയിലെ പ്രതിസന്ധി മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്തേക്കും

വാർത്തകൾ വിശദമായി രാജ്യത്തെ കോവിഡ് പരിശോധനയുടെ എണ്ണം കൂട്ടാൻ സംസ്ഥാന ഗവൺമെന്റുകളും പൊതുമേഖലാ സ്വകാര്യ ആശുപത്രികളും നടപടിയെടുക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ ആവശ്യപ്പെട്ടു

രാജ്യത്ത് ഇപ്പോൾ ആയിരത്തിലേറെ കോവിഡ് പരിശോധനാ ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും കൌൺസിൽ ട്വിറ്ററിൽ കുറിച്ചു

കോട്ടയത്ത് എട്ടുപേർക്കും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ആറുപേർക്ക് വീതവും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നാലുപേർക്ക് വീതവും വയനാട്ടിൽ രണ്ടുപേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

എറണാകുളത്ത് ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗമുണ്ടായി

ഓഡിയോ വിശദാംശങ്ങളുമായി അനുഷ ആത്മപ്രകാശ് ദേഴ ഉറവിടം കണ്ടെത്താനാവാത്ത കേസുകൾ കേരളത്തിൽ രണ്ട് ശതമാനത്തിൽ താഴെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

ഈ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാനാകുമെന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ച് വരികയാണെന്നും വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

പരിശോധനാ കേന്ദ്രങ്ങളുടെ എണ്ണവും തോതും വർദ്ധിപ്പിച്ച് വൈറസ് വ്യാപനം തടയുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ഓഫീസുകളുടെ എണ്ണം കൂടുതലായതിനാൽ നിരത്തുകളിൽ തിരക്ക് വർദ്ധിക്കുന്നുണ്ട്

ഈ സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ കോവിഡ് ഭേദമായി ദുബായിൽനിന്ന് നാട്ടിലെത്തിയ കൊല്ലം പെരിനാട് സ്വദേശി ഹൃദയാഘാതം മൂലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു

ഇന്നലെ വൈകിട്ട് ലഭിച്ച ഇയാളുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു രുമ കോവിഡ് വ്യാപനത്തെത്തുടർന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് ഉൾപ്പെടെ ഗവൺമെന്റ് ഓഫീസുകളിൽ കർശന സന്ദർശക നിയന്ത്രണം ഇന്ന നിലവിൽ വരും ചാല പാളയം മാർക്കറ്റുകളിലും മാളുകളിലും നിയന്ത്രണമുണ്ട് പലചരക്ക് കടകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ തുറക്കൂ ദരര നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ കോവിഡ് പരിശോധനയിലെ പ്രതിസന്ധി ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും ട്രൂനാറ്റ് പരിശോധന വേണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയതോടെ ആന്റിബോഡി പരിശോധനയുടെ സാധ്യത പരിഗണിച്ചേക്കും തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നാളെ മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു ദരദ ഇടുക്കി ജില്ലയോട് ചേർന്ന തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ഇന്നു മുതൽ ഒരാഴ്ച ലോക്ഡൌൺ പ്രഖ്യാപിച്ചു കമ്പം ബോഡിനായ്ക്കന്നൂർ തേനി മുനിസിപ്പാലിറ്റികളിലാണ് നിയന്ത്രണം കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെത്തുടർന്നാണ് നടപടി

ആറ് ചാർട്ടേഡ് വിമാനങ്ങളിലാണ് പ്രവാസികൾ എത്തിയത് രുമ ലോകത്തെ കോവിഡ് രോഗികളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നര ലക്ഷം കവിഞ്ഞു

കോവിഡ് സാഹചര്യംമൂലം കരാർവെച്ച പദ്ധതികളടക്കം സംസ്ഥാനത്ത് വൈകുന്നുണ്ട് ഇവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല

രേര കൊല്ലം തുറമുഖത്ത് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളൊരുക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ജെ

എമിഗ്രേഷനിലെ കാലതാമസമാണ് കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് തടസ്സമാകുന്നതെന്ന് മന്ത്രി വിലയിരുത്തി

പെട്രോൾ വിലയിൽ ഇന്ന് മാറ്റമില്ല രുമ കേരളത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഴുവൻ ക്ഷേത്രങ്ങളുടെയും വൈദ്യുതി ചാർജ്ജ് ഒഴിവാക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഗവൺമെന്റിനോടാവശ്യപ്പെട്ടു പലപ്പോഴും കൈയിൽ നിന്ന് പണമെടുത്താണ് പൂജാരിമാർ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതെന്നും സമിതി വെളിപ്പെടുത്തി ദേദ നിയമാനുസൃത നടപടിയിലൂടെ മാത്രമേ ശബരിമല വിമാനത്താവള നിർമ്മാണത്തിന് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനാവൂ എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ഭൂമി ഏറ്റെടുക്കുമ്പോൾ ബലപ്രയോഗം പാടില്ല ഗവൺമെന്റ് നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്